അസമിൽ പ്രളയനില കൂടുതൽ രൂക്ഷമായി

വില്യംസ് സിമോണ ഹാലപ്പിനെ നേരിടും പുരുഷ സിംഗിൾസ് സെമിഫൈനൽ ഇന്ന്

എന്നാൽ വിദ്യാഭ്യാസസ്സ്ട്രാപനങ്ങളിലും ഗവൺമെന്റ് ജോലിക്കും മറാത്ത വിഭാഗത്തിന് സ്ംവരണം ഏർപ്പെടുത്തിയതിനെതിരെ സമർപ്പിക്കപ്പെട്ട അപ്പീൽ പരിഗണിക്കുമെന്ന് പരമോന്നത കോടതി വൃക്തമാക്കി

അപ്പീൽ സംബന്ധിച്ച് മറുപടി നൽകാൻ മഹാരാഷ്ട്ര ഗവൺമെന്റിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു സന്നദ്ധ സംഘടനയാണ് അപ്പീൽ സമർപ്പിച്ചത്

ജമ്മു ഡിവിഷനിലെ രജൌരിയിലും പൂഞ്ചിലുമാണ് പാക് പ്രകോപനം ഉണ്ടായത്

ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

ഇരു ഭാഗത്ത് നിന്നുമുള്ളൂ വെടിവെയ്പ് ഇപ്പോഴും തുടരുന്നതായാണ് റിപ്പോർട്ട്

ലൂങ്ക്ൻ അതിർത്തിയിൽ മത്സ്യബന്ധനം നടത്തിയതിന് ഇപ്പർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു

വിശദാംശങ്ങളുമായി പ്രിയ

അമേരിക്കയുടെ ദക്ഷിണ മധ്യ ഏഷ്യൻ കാര്യങ്ങൾക്കായുള്ള പ്രതിനിധി ക്രിസ്റ്റഫർ വിൽസണാണ് യു എസ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഇന്ത്യൻ സംഘത്തിന് വാണിജ്യ വ്യാപാര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി നേതൃത്വം നൽകും യു എസ് പ്രതിനിധി സംഘം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെ സന്ദർശിച്ച് സംഭാഷണം നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത് സംബന്ധിച്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദേശകാര്യ സെക്രട്ടറി സഞ്ജീവ് അറോറ യൂറോപ്യൻ കമ്മീഷൻ ഡയറകടർ ജനറൽ എന്നിവരുടെ സംയുക്ത അധ്യക്ഷതയിലാണ് യോഗം നടന്നത് പങ്കാളിത്ത വികസനം വർദ്ധിപ്പിക്കുമെന്ന് ഇരു സംഘങ്ങളും വ്യക്തമാക്കി

ബി ജെ പി എം പിമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ അഞ്ചാംവട്ട കൂടിക്കാഴ്ചയായിരുന്നു ഇത് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുമായും പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളുമായും ആദൃമായി പാർലമെന്റിലെത്തുന്ന അംഗങ്ങളുമായും പ്രധാനമന്ത്രി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ അമിത് ഷാ പാർലമെന്ററികാരൃമന്ത്രി പ്രഹ്ളാദ് ജോഷി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു

കോൺസുലേറ്റ് പാസ്പോർട്ട് വിസ പ്രവാസി ഇന്ത്യൻ കാര്യം എന്നിവയുടെ ചുമതലയാണുള്ളത്

നാല് ദിവസമാണ് സന്ദർശനം

ചെന്നൈയിൽ കേരളാ ഗവർണറും സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ പി സതാശിവത്തിന് രാഷ്ട്രപതി ഡോക്ട്രേറ്റ് ബിരുദം സമ്മാനിക്കും ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ദെ ജസ്റ്റിസ് വിജയ കമലേഷ് എന്നിവർക്കും രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും

പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സർഫാസി നിയമം മൂലം സംസ്ഥാനത്തിനുണ്ടായ പ്രത്യഘാതത്തെക്കുറിച്ചു പഠിക്കാൻ നിയോഗിക്കപ്പെട്ട എസ് ശർമ്മ എം

എ അധ്യക്ഷനായുളള നിയമസഭാ സമിതി ജില്ലയിൽ തെളിവെടുപ്പ് നടത്തവെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്

കിരീട നേട്ടത്തിൽ ഇരു താരങ്ങളും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ്

ഇന്ന് നടക്കുന്ന ആദ്യ സെമിയിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് സ്പാനിഷ് താരം റോബർട്ടോ ബാറ്റിസ്റ്റാ ആഗട്ടും തമ്മിൽ മത്സരിക്കും നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ യു എസിന്റെ സെറീന വില്യംസ് റുമാനിയൻ താരം സിമോണ ഹാലപ്പിനെ നേരിടും

ഐ എ

എം

എം കെ പാർട്ടികളിൽ നിന്ന് രണ്ടു വീതവും പി

സഭയിൽ തെറ്റായ വിവരം നൽകിയതിനെതിരെയാണ് പ്രമേയം ടി ഡി പി ഗവൺമെന്റ് കർഷകർക്ക് പലിശ രസിത വായ്പ നൽകിയിരുന്നു എന്നാൽ വായ്പ നൽകിയിട്ടില്ലെന്നാണ് ജഗൻ മോഹൻ റെഡ്സി നിയമസഭയെ അറിയിച്ചതെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു